ഝാർഖണ്ഡിൽ ഒന്നാം ഘട്ട നിയമീസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു

പാർട്ടിക്കിൾസ് മികച്ചു ചിത്രം

മുംബൈയിലെ ശിവജി പാർക്കിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരി സത്യവാചകം ചൊല്ലിക്കൊടുത്തു

ആദ്യ മുഖ്യമന്ത്രിയും ശിവസേന എൻ സി പി കോൺഗ്രസ്സ് ത്രികക്ഷി സഖ്യത്തിലെ ആറ് മന്ത്രിമാരും ഉദ്ധവ് താക്കറെയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു ഏകനാഥ് ഷിൻഡേ ജയന്ത് പാട്ടിൽ ഛഗൻ ഭുജ്പൽ സുഭാഷ് ദേശായി എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു അജിത് പവാർ അടക്കം പ്രമുഖരുടെ നീണ്ടനിര സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി

പശ്ചിമബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന കാലിയാഗഞ്ച് കരിംപൂർ മണ്ഡലങ്ങളിൽ ത്രിണമൂൽ കോൺഗ്രസ് വിജയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്

പുതിയു ഭേദ്ദഗതി പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും സുതാരൂത് ഉറപ്പുവരുത്തുന്നതിനും പ്രാധാന്യം നൽകുന്നതായി പാർലമെന്റിൽ ന്ടന്ന ചർച്ചകൾക്ക് മറുപടിയായി കേന്ദ്ര ധനകാര്യസഹമന്ത്രി അനുർാഗ് താക്കൂർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രനഗര വികസന മന്ത്രി ഹർദ്ദീപ് സിംഗ് പുരിയാണ് ബിൽ അവതരിപ്പിച്ചത് കോളനികളിൽ താമസ്റ്റിക്കുന്ന നാൽപത് ലക്ഷം പേർക്ക് താമസ സ്ഥലത്തിന്മേൽ ഉടമസ്ഥാവകാശം നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു

സൌരോർജ്ജ പദ്ധതികളുടെ ഭൂരിഭാഗവും നടപ്പാക്കുകയെന്നും മന്ത്രി പറഞ്ഞു

ബി എസ് ഇ

പട്ടികജാതി ്പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവരടക്കം ഡൽഹിയൊഴികെ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ വിഭാഗം സി ബി

പെഗാസസ് പോലുള്ള വിവരങ്ങൾ ചോർത്താനുപയോഗിക്കുന്ന സ്പൈവെയറുകൾ ഉപയോഗിച്ച് വാട്സ് വഴി ഫോണുകളിൽ നിന്നുള്ള വ്യക്തിഗത വിവരങ്ങൾ ആപ്പ് ചോർത്തുന്നതു സംബന്ധിച്ച ശ്രദ്ധക്ഷണിക്കലിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ഇതു സംബന്ധിച്ച പരാതികളിന്മേൽ എഫ്

സുരക്ഷ ഉറപ്പുവരുത്താൻ ഐ

നിയമത്തിൽ മതിയായ വ്യവസ്ഥകളുണ്ടെന്നും മന്ത്രി പറഞ്ഞു

ബിൽ ഇന്നലെ ലോക്സഭ പാസ്റ്റാക്കിയിരുന്നു ഇലക്ട്രോണിക് സിഗരറ്റുകളുടെ ഉല്പാദനം വിപണനം വിതരണം പരസ്യം സംഭരണം എന്നിവ നിരോധിക്കാൻ നിയമം വ്യവസ്ഥചെയ്യുന്നു നിക്കോട്ടിൻ തുടങ്ങിയ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ വസ്തുക്കൾ ചൂടാക്കി സിഗരറ്റിനു സമാനമായ വിധത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഇ സിഗരറ്റെന്ന് നിയമം വ്യക്തമാക്കുന്നു നിയമലംഘനം നടത്തുന്നവർക്ക് ഒരു വർഷംവരെ തടവോ ഒരു ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടെയോ ലഭിക്കാം

ചെറുകിട വ്യവസായങ്ങളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ രേഖാമൂലം അറിയിച്ചതാണ് ഇക്കാര്യം അന്താരാഷ്ട്രതലത്തിൽ വിപണിമൂല്യം വർദ്ധിപ്പിക്കാൻ ഉതകുന്നതരത്തിൽ ഗുണമേന്മയിൽ വർദ്ധന ഉണ്ടാകുന്നതിന് ഗവൺമെന്റ് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു

വോയിസ് ഒൻപത് ദിവസം നീണ്ടു നിന്ന ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സുവർണ ജൂബിലിയ്ക്ക് ഇന്ന് പരിസമാപ്തി

മലയാളി സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി മികച്ച സംവിധായകനുള്ള രജത മയൂരം രണ്ടാം തവണയും നേടി ജെല്ലിക്കെട്ട് എന്ന ചിത്രമാണ് ലിജോയ്ക്ക് പുരസ്ക്കാരം നേടി കൊടുത്തത്

പുതുമുഖ ചിത്രത്തിനുള്ള പുരസ്ക്കാരം മോൺസ്റ്റേഴ്സ് അബൌ ലെയ്ല എന്നീ ചിത്രങ്ങൾക്കാണ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നഗരത്തിലെ രണ്ട് പാലങ്ങൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചതിനെ തുടർന്നാണ് വെടിവെയ്പ്പുണ്ടായത്

ഹിമാചൽ പ്രദേശിൽ ഹിമകാറ്റ് വൻ മഞ്ഞുവീഴ്ചയ്ക്കും മഴയ്ക്കും കാരണമായി

ഡറാഡൂണിലെ നൈനിറ്റാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കനത്ത മൂടൽ മഞ്ഞാണുള്ളത് താഴ്വാര പ്രദേശം ഉൾപ്പെടെ കൾമീരിന്റെ മിക്ക ഭാഗങ്ങളിലും മഞ്ഞുവീഴ്ച ആരംഭിച്ചിട്ടുണ്ട്

ചെന്നൈ കന്യാകുമാരി വ്യവസായ ഇടനാഴിയിലുടനീളം ഊർജ്ജ വിതരണം ശക്തിപ്പെടുത്താനാണ് വായ്പ ചെന്നൈ മുതൽ കന്യാകുമാരിവരെ തമിഴ്നാടിന്റെ കിഴക്കൻ തീരപ്രദേശത്തെ ബന്ധിപ്പിച്ചാണ് വ്യാവസായിക ഇടനാഴി കടന്നുപോകുന്നത് വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ തമിഴ്നാട് ഗവൺമെന്റിന് വായ്പ പ്രയോജനകരമാവുമെന്ന് ധനകാര്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി സമീർ കുമാർ ഖരെ അറിയിച്ചു